രൂപയുടെ വിവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും

എഫ് ജവാൻമാർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി മലയാളി ജവാൻ വി

വസന്തകുമാറിന്റെ മൃതദേഹം പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു

ചാവേറാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പാകിസ്ഥാൻ സഹായം നൽകിയതായി റവല്യൂഷണറി ഗാർഡ്സ് മേജർ ജനറൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ്

ഹാലപ്പിനെ ്പരാജയപ്പെടുത്തി ബെൽജിയത്തിന്റെ എലീസ് മെർട്ടൺസിന് കിരീടം

ഉലാവിൽ പൊതുസമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും പറ്റ്ന മെട്രോ റെയിൽ പ്പിദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും

പ്രദിപ് ഹൽദിയാ ദുർഗാപൂർ പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ വികസനപ്രവർത്തനങ്ങളും വീഡിയോ കോൺഫറൻസിങിലൂടെ ഉദ്ഘാടനം ചെയ്യും

നിർമ്മൽ ഗംഗാ പദ്ധതിയുടെ ഭാഗമായി ബീഹാറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും നാല് പട്ടണങ്ങളെ ഉൾക്കൊള്ളുന്ന സ്വീവേജ് കനാലാണ് പദ്ധതിയിലെ പ്രധാന നിർമ്മിതി

വിദ്യാഭ്യാസം ആരോഗ്യം ജലസേചനവും ശുചിത്വവും തുടങ്ങിയ മേഖലകളിലെ നിരവധി വികസന പദ്ധതികൾക്ക് അദ്ദേഹം അതുടക്കം കുറിക്കും മൂന്ന് മെഡിക്കൽ കോളേജുകൾ ആചാര്യ വിനോബ ഭാവെ സർവകലാശാല തുടങ്ങിയവ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഈ നാം പദ്ധതി പ്രകാരം കർഷകർക്ക് മൊബൈൽഫോൺ വാങ്ങാനുള്ള തുകയ്ക്കുള്ള ചെക്കുകളും പ്രധാനമന്ത്രി കൈമാറും പോഷകാഹാരക്കുറവ് പരിഹരിക്കാനായി തെരെഞ്ഞെടുത്ത ഗവൺമെന്റ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന സൌജന്യ പൽവിതരണവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

ആക്രമണത്തെ ശക്തമായി നേരിടുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെയും ആവർത്തിച്ചു മുൻ കാലങ്ങളിൽ ശത്രുക്കൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടത്തിയ പ്രത്യാക്രമണങ്ങൾ ഇതിന് തെളിവാണെന്ന് മഹാരാഷ്ട്രയിലെ ധൂലെയിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കവെ പ്രധാനമന്ത്രി വ്യക്തമാക്കി

വസന്തകുമാറിന്റെ പ്രസ്കാരം സംസ്ഥാന സൈനിക ബഹുമതികളോടെ ഇന്നല്ലെ വയനാട്ടിലെ ലക്കിടിയിൽ നടന്നു

തൃക്കൈപ്പറ്റയിലെ കുടംബ ശ്മശാനനത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്

പൂൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വ്യാപാര രംഗത്ത് ഏറ്റവും അഭിമത രാഷ്ട്രമെന്ന് പാകിസ്ഥാൻ നൽകിയിട്ടുള്ള പദവി പിൻവലിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി ഇനി ഗണ്യമായി കുറയുമെന്ന് ധനമന്ത്രി അരുൺ ജയ്റ്റ്ലി ട്വീറ്റ് ചെയ്തു

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ വോയിസ് നാൽപ്പതിലധികം ലോക ് രാഷ്ട്രങ്ങളും മൂന്നോളം അന്താരാഷ്ട്ര സംഘടനകളുമാണ് പുൽവാമ ഭീകരാക്രമണത്തെ അപലപിച്ചത് ഐക്യരാഷ്ട്രസഭ ഷാങ്ഹായി സഹകരണ സംഘടന യൂറോപ്യൻ യൂണിയൻ എന്നീ സംഘടനകൾ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി അമേരിക്ക ഫ്രാൻസ് കാനഡ ഇസ്രായേൽ തുർക്കി സൌദി അറേബ്യ ജർമ്മനി ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള നാൽപ്പതിലധികം രാജ്യങ്ങളാണ് ഇന്തൃയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഇന്തൃയുടെ അയൽരാജ്യങ്ങളായ ശ്രീലങ്ക ഭൂട്ടാൻ നേപ്പാൾ മാലദ്വീപ് മൌറീഷ്യസ് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളും ഭീകരാക്രമണത്തെ അപലപിച്ചു ഭീകരാക്രമമത്തിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുമെന്നും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും ബംഗ്ലാദേശ് അറിയിച്ചു മേഖലാ അന്താരാഷ്ട്ര തലങ്ങളിൽ തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടികൾ അത്യാവശ്യമാണെന്ന് ബംഗ്ലാദേശ് ഇൻഫർമേഷൻ മന്ത്രി ഹസൻ മൊഹമ്മൂദ് കൊൽക്കത്തയിൽ അറിയിച്ചു

ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്

ചട്ടങ്ങിൽ ഹരിയാന കിസാൻ രത്ന ഹരിയാന കൃഷി രത്ന പുരസ്കാരങ്ങൾ അദ്ദേഹം സമ്മാനിക്കും

പി അദ്ധ്യക്ഷൻ അമിത്ഷാ അസ്സമിലെ ലഖിംപൂരിൽ ഇന്ന് സമ്മേളനത്തെ യുവജന അഭിസംബോധന ചെയ്യും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ബി

അസ്സം മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാൾ പാർട്ടി സംസ്ഥാന അദ്ധ്യക്ഷൻ രഞ്ജിത് കുമാർദാസ് മുതിർന്ന നേതാവും എൻ

റെവല്യൂഷണറി ഗാർഡ്സ് മേജർ ജനറൽ മൊഹമ്മദ് അലി ജഫാരി സേനാംഗങ്ങളുടെ സംസ്ക്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവെയാണ് വിധംസക പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ നൽകുന്ന സഹായത്തെ അദ്ദേഹം വിമർശിച്ചത് ജയ്ഷ് അൽ അദൽ എന്ന ഭീകര സംഘത്തെ എടുത്തു പറഞ്ഞ മേജർ ജനറൽ ഇസ്താമിന് ഭീഷണിയായ ഈ പ്രതിവിപ്തവകാരികൾ എവിടെയെന്ന് പാകിസ്ഥാൻ ഗവൺമെന്റിന് അവർക്കെതിരെ അറിയാമെന്നും പറഞ്ഞു

ഭീകരർ കൊല്ലപ്പെട്ടു ഹൌധ് അൽ വഖഫ് പ്രദേശത്തെ ഐ

താവളങ്ങൾ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിലിനിടയിലാണ് സുരക്ഷാസേന വ്യോമാക്രമണം നടത്തിയത്